ഐ അന്വേഷണ സംഘം വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണ കേസ് സി ബി ഐക്ക് കൈമാറാൻ ആവശ്യപ്പെടുമെന്ന് ദേശീയ പട്ടികജാതി കമ്മീ ഷൻ

ജെ

ഇന്ന് ബാങ്കോക്കിൽ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും

തിരുക്കുറളിന്റെ തായ് ഭാഷാ തർജ്ജമയും അദ്ദേഹം പ്രകാശിപ്പിക്കും ദക്ഷി ണേഷ്യൻ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സൈനിക സാമ്പത്തിക സ്വാധീനം അസിയാൻ അംഗരാഷ്ട്രങ്ങളുമായി പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ ചർച്ച ചെയ്തേക്കും

പി കരാറിൽ ഇന്ത്യ പങ്കാളിയാകുമോ എന്ന കാര്യത്തിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ വൃക്തതവരും രുട്ട്ട്ട്ട്ട്ട്ട്ട അട്ടപ്പാടിയിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉണ്ടായത് പൊലീസ് ഭീകരതയാണെന്ന് സ്ഥലം സന്ദർശിച്ച സി

ഐ സംഘം കുറ്റ പ്പെടുത്തി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ്ബാബുവിന്റെ നേതൃ ത്വത്തിൽ സി

ഐ സംഘം ഇന്നലെയാണ് അട്ടപ്പാടി വനമേഖലയിലെത്തി യത് മാവോവാദികൾ ആദ്യ വെടിവെച്ചുവെന്ന പൊലീസ് വാദം തെറ്റാ ണെന്നും അത്തരം ലക്ഷണങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും സന്ദർശ നത്തിനുശേഷം കെ പ്രകാശ്ബാബു മാധ്യമങ്ങളോട്ട് പറഞ്ഞു മാവോയി സ്റ്റുകളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നും ഏറ്റുമുട്ടൽ നടന്നെന്ന് തെളിയിക്കാൻ പൊലീസ് വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചതായും അദ്ദേഹം പറഞ്ഞു വിശദ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് നൽകു മെന്നും സംഘം അറിയിച്ചു അതേസമയം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഗവൺമെന്റ് മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച സാഹ ചര്യത്തിൽ സംഭവസ്ഥലത്തേക്ക് സി

ഐ നേതാക്കൾ നടത്തിയ സന്ദർശനം തെറ്റായ സന്ദേശമാണ് നൽകുകയെന്ന് മന്ത്രി എ കെ ബാലൻ കുറ്റപ്പെടുത്തി

ബി ഐക്ക് കൈമാ റാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിനോട് ആവ ശ്യപ്പെടുമെന്ന് വൈസ് ചെയർമാൻ എൽ മുരുകൻ ഡൽഹിയിൽ അറിയി ച്ചു കേസ് പരിഗണിച്ച പാലക്കാട് പോക്സോ കോടതി തെളിവുകളുടെ അഭാ വത്തിൽ പ്രതികളെ വെറുതെ വിട്ടിരുന്നു

ജെ പി പാലക്കാട് അട്ടക്കുളത്ത് നടത്തിവരുന്ന നൂറ് മണിക്കൂർ സത്യ ഗ്രഹം ഇന്ന് സമാപിക്കും രാവിലെ മുതിർന്ന പാർട്ടി നേതാവ് ഒ രാജഗോ പാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് പെൺകുട്ടികളുടെ വീട് സന്ദർശിക്കും കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം തിങ്കളാഴ്ച ഉപവസിക്കും

എൽ ദത്തു വിലയിരുത്തി തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ്ഹൌസിൽ നടത്തിയ രണ്ട് ദിവസത്തെ സിറ്റിംഗിന്റെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായി രുന്നു അദ്ദേഹം

ചീഫ് സെക്രട്ടറി അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കമ്മീഷൻ കൂടിക്കാഴ്ചയും നടത്തി ദർവ്വെട്ടറ രാജ്യാന്തര നാളികേര കോൺഫറൻസും എക്സ്പോയും രാവിലെ കോഴിക്കോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാ രായ ഇ പി ജയരാജൻ ഡോക്ടർ തോമസ് ഐസക് വി എസ് സുനിൽകു മാർ കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ തുടങ്ങിയ വർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും നാളികേര മേഖലയുടെ പ്രോത്സാ ഹനത്തിന് പുത്തൻ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്താനാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ദൃഭ ചേരി പുനരധിവാസ പദ്ധതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ നിർമ്മിച്ച ബഹുനില ഫ്ളാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് ഉദ്ഘാടനം ചെയ്യും

കോളനി പൊളിച്ചുമാ റ്റുന്ന സ്ഥലത്ത് നിർമ്മിക്കുന്ന മാർക്കറ്റ് സമുച്ചയത്തിന് മന്ത്രി ടി പി രാമകൃ ഷ്ണൻ തറക്കല്പിടും ആധുനിക രീതിയിൽ മാർക്കറ്റ് സമുച്ചയം നിർമ്മിച്ച് പാളയം മാർക്കറ്റ് ഇവിടേക്ക് മാറ്റാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്

മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് തുടരും മഴയുമായി ബന്ധപ്പെട്ട അലർട്ടുകളും പിൻവലിച്ചു രദേഷ്ടെടു കണ്ണൂരിൽ കടൽക്ഷോഭത്തിൽപ്പെട്ട് കാണാതായ രണ്ട് തൊഴിലാളി കൾക്കായി ഇന്നും തെരച്ചിൽ തുടരും ആയിക്കരയിൽ നിന്ന് ഫൈബർ വള്ള ത്തിൽ മീൻപിടുത്തത്തിന് പോയ ഒരാളും ചാവക്കാട്ടുനിന്ന് ബോട്ടിൽ പോയ മറ്റൊരാളുമാണ് കടലിൽ വീണത്

കടൽക്ഷോഭത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തൊഴിലാളി കളെ കണ്ണൂരിൽ മത്സ്യബോർഡ് ചെയർമാൻ സി പി കുഞ്ഞിരാമൻ സന്ദർശിച്ച് സഹായധനം കൈമാറി രുട്ട്ട്ട്ട്ട്ട്ട്ട ടൂറിസം രംഗത്ത് കേരളവുമായി സമാനത പുലർത്തുന്ന മിസോറാമു മായി കൈകോർത്ത് നടപ്പാക്കാവുന്ന പദ്ധതികൾ ആലോചിക്കുമെന്ന് നിയുക്ത മിസോറം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പറ ഞ്ഞു മിസോറം വികസനത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും മനസ്സ് കേരളത്തോടൊപ്പമുണ്ടാവുമെന്ന് ഡൽഹിയിലേക്ക് പോകുംമുമ്പ് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ചൊവ്വാഴ്ചയാണ് ശ്രീധരൻപിള്ള ഗവർണറായി സ്ഥാനമേൽക്കുന്നത് രദ്ദേഷ്ടങ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ എവേ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പുതുമുഖ ടീമായ ഹൈദരാബാദ് എഫ്

ഹൈദരാബാദ് ജി

സി ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരക്കാണ് കിക്കോഫ് ഒരു ജയവും ഒരു തോൽവിയുമായി പോയിന്റ് പട്ടികയിൽ ഏഴാംസ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഗോഹട്ടിയിൽ ഗോവ നോർത്ത് ഈസ്റ്റ് മത്സരം ഇരുടീമുകളും രണ്ടുഗോളുകൾ വീതം നേടി സമ നിലയിൽ അവസാനിച്ചു

ആചാര്യ നാഗാർജ്ജുന യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ആദ്യദിവസം പതിനൊന്ന് ഫൈനലുകൾ നടക്കും

അവസാന സെമിഫൈനൽ ലീഗ് റൌണ്ടിൽ മദ്രാസ് സർവകലാശാലയെ കാലിക്കറ്റ് തോൽപ്പിച്ചു അഞ്ച് പോയി ന്റോടെയാണ് കാലിക്കറ്റ് രണ്ടാംസ്ഥാനം നേടിയത് അണ്ണാമല സർവകലാ ശാലയാണ് ചാമ്പ്യൻമാർ ആദ്യ നാല് സ്ഥാനങ്ങൾ നേടിയ ടീമുകൾ ഭുവ നേശ്വർ അഖിലേന്ത്യാ അന്തർ സർവകലാശാലാ മത്സരത്തിന് യോഗ്യത നേടി

മത്സരങ്ങൾ ഇന്ന് അവസാനിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കാക്കഞ്ചേരി കിൻഫ്ര പാർക്കിൽ ആരംഭിക്കുന്ന ഭക്ഷ്യാത്പാദന ശാല യും ഗവേഷണ വികസനകേന്ദ്രവും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് ഉദ്ഘാടനം ചെയ്യും കമ്പനിഉത്പന്നങ്ങളുടെ ഓൺലൈൻ വിപണനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ഇ പി ജയരാജൻ ചട ങ്ങിൽ അധ്യക്ഷനായിരിക്കും വിവിധ പോഷക ഉത്പന്നങ്ങൾ ചടങ്ങിൽ വിപ ണിയിലിറക്കും

ഹബ്ബിന്റെ പ്രവേശന കവാടം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും എൻട്രൻസ് പ്ലാസ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ചിൽഡ്രൻസ് പാർക്ക് മന്ത്രി എം എം മണിയും ഉദ്ഘാടനം ചെയ്യും

കലോത്സവത്തിന് മുന്നോടിയായി കുടുംബശ്രീ അംഗങ്ങളുടെ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചിരു ന്നു

ദർവ്വെട്ടറ കേരള റെയിൽ ഡവലപ്പ്മെന്റ് കോർപ്പറേഷന്റെ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി അവതരണം ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ട് നടക്കും ചീഫ് സെക്ര ട്ടറി ടോം ജോസാണ് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പദ്ധതി അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് പുതിയ സെമി ഹൈസ്പീഡ് പാത നിർമ്മിക്കാൻ ലക്ഷ്യമിടു ട ന്നത് രുട്ട്ട്ട്ട്ട്ട്ട്ട കൂടത്തായി കൊലപാതക പരമ്പരയിലെ ആൽഫൈൻ കേസിൽ മുഖ്യ പ്രതി ജോളിയെ രണ്ടുദിവസം കൂടി പൊലീസ് കസ്റ്റഡിയിൽ വിട്ടു നാലുദി വസത്തെ പൊലീസ് കസ്റ്റഡിക്ക് ശേഷം ഇന്നലെ താമരശേരി കോടതിയിൽ ജോളിയെ ഹാജരാക്കി നാളെ ഞായറാഴ്ച ആയതിനാൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു ഇന്നലെ ജോളിയുടെ രണ്ട് മക്കളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി രദേഷ്ടെടു ഇന്നലെ കോഴിക്കോട്ട് അന്തരിച്ച എഴുത്തു കാര്നും മാധ്യമ പ്രവർത്തകനും നടനുമായിരുന്ന എ നന്ദകുമാറിന്റെ സംസ്കാരം രാവിലെ കൊച്ചി രവിപുരം ശ്മശാനത്തിൽ നടക്കും ഇന്നലെ പുലർച്ചെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഇടതുപക്ഷ സഹ യാത്രികനായിരുന്ന നന്ദകുമാർ ചലച്ചിത്ര സാംസ്കാരിക രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു രദേശ്ശേ നാവികസേനയ്ക്കുവേണ്ടി ്തദ്ദേശീയ വിമാനവാഹിനിക്കപ്പൽ വികസി പ്പിക്കുന്നതിന് മൂവായിരം കോടിയിൽപ്പരം രൂപയുടെ കരാർ ലഭിച്ചതായി കൊച്ചി കപ്പൽ നിർമ്മാണശാല അറിയിച്ചു രാജ്യരക്ഷാ വകുപ്പും കൊച്ചിൻ ഷിപ്പ്യാർഡും ഇതിനായി ഉടമ്പടി ഒപ്പുവെച്ചു

ഇരുനൂറോളം സ്ഥകാര്യ ബസുകൾ ഓട്ടം നിർത്തിയതോടെ യാത്രാക്ലേശം രൂക്ഷമായി